ബിജെപ്പി സംസ്ഥാന പ്രസിഡന്റ് പി

അനിയന്ത്രിതമായ മത്സ്യബന്ധനം മത്സ്യസമ്പത്തിന്റെ നാശത്തിന് കാരണമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൊച്ചി യിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഫിഷറീസ് മന്ത്രിമാരുടെ സമ്മേ ളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ വസ്തുത കണ ക്കിലെടുത്ത് അനിയന്ത്രിതമായ മത്സ്യബന്ധനം നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് ഈ മേഖലയിലെ വിദഗ്ധരുടെ സഹകരണത്തോടെ നടപ ടികൾ കൈകൊണ്ടുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു മത്സ്യബന്ധ ന യാനങ്ങളുടെ വലുപ്പം നിയന്ത്രിച്ചുകൊണ്ടും മത്സ്യബന്ധന ദിനങ്ങൾ പിടിക്കുന്ന മത്സ്യത്തിന്റെ വലുപ്പം എന്നിവയിൽ നിയന്ത്രണം കൊണ്ടു വന്നുമാണ് ഗവൺമെന്റ് ഇത് നടപ്പിലാക്കുന്നതെന്നും മുഖൃമന്ത്രി വൃക്ത മാക്കി പരമ്പരാഗത മത്സൃതൊഴിലാളികൾക്ക് ആഴക്കടൽ മത്സൃബന്ധനം സാധ്യമാക്കുന്നതിന് പരിശീലനം ഉൾപ്പെടെ പരിപാടികൾ നടപ്പാക്കാൻ ഗവൺമെന്റിന് പദ്ധതിയുണ്ട് ഇതിന് പുറമെ തൊഴിലാളികൾക്ക് ആഴക്ക ടൽ മത്സ്യബന്ധനം സാധ്യമാക്കുന്നതിന് ആധുനികബോട്ടുകൾ മത്സ്യ തൊഴിലാളി സഹകരണ സംഘങ്ങൾവഴി ലഭ്യമാക്കാനും പദ്ധതിയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മി അധ്യക്ഷയായിരു ന്നു ആന്ധ്രപ്രദേശ് കർണ്ണാടക മഹാരാഷ്ട്ര പുതുച്ചേരി എന്നിവിടങ്ങ ളിലെ ഫിഷറീസ് മന്ത്രിമാർ സമ്മേളനത്തിൽ പ്ങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പും സി

യും സംയുക്തമായാണ് പരി പാടി സംഘടിപ്പിച്ചത് ഇടത് ഗവൺമെന്റ് അഴിമതി ഗവൺമെന്റായി അധഃപതിച്ചതായി പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

വിവാദത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും ജലീലിനെതിരെ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു ഈ ഗവൺമെന്റിനൊപ്പം നിന്ന് എന്ത് അഴിമതിയും നടത്താവുന്ന അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതി ചൂണ്ടിക്കാട്ടിയാൽ തെളിവുണ്ടെങ്കിൽ കോട തിയിൽപോകാനാണ് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്

എം നേതൃത്വവും നടപടിയെടു ക്കുന്നില്ലെന്നൂം ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മന്ത്രി ഡോ

ജലീലിനെതിരായ ബന്ധുനിയമന ആരോപണം രാഷ്ട്രീയപ്രേരിതമെന്ന് സി

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു മന്ത്രി ജലീൽ കുറ്റം ചെയ്തതായി പാർട്ടി കരുതുന്നില്ല

ആരോ പണങ്ങൾ അദ്ദേഹത്തിനെതിരെയുള്ള വൃക്തിഹതൃശ്രമമാണ് നിയമ ലംഘനമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും കോടിയേരി കോഴി ക്കോട് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിനെ അസ്ഥിരമാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്

ഇതോടനുബന്ധിച്ച പുരാരേഖകളുടെ പ്രദർശനം മന്ത്രി എ കെ ശശീന്ദ്രനും ഉദ്ഘാടനം ചെയ്തു എറണാകുളത്ത് മന്ത്രി പ്രൊഫ

രവീന്ദ്രനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്ത് ക്ഷേത്രപ്ര വേശന വിളംബര വാർഷികാഘോഷം കൊണ്ടോട്ടിയിൽ മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു

പി ജയരാജൻ നിർവ്വഹിക്കും

കേരളത്തിന്റെ രണ്ടു നൂറ്റാണ്ടുകാലത്തെ നവോത്ഥാന ചരിത്രം ഉൾക്കൊള്ളുന്നതാണ് എക്സിബിഷൻ

ജെ പി സംസ്ഥാന് പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള നയി ക്കുന്ന ശബരിമല സംരക്ഷണ രഥയാത്ര കോഴിക്കോട് ജില്ലയിൽ പ്രവേ ശിച്ചു വയനാട്ടിൽ പര്യടനം പൂർത്തിയാക്കി ജില്ലയിൽ പ്രവേശിച്ച യാത്രയെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ടി പി ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ തൊട്ടിൽപ്പാലത്ത് പ്രവേറ്റു

തുടർന്ന് കൊയിലാണ്ടിയിലും യാത്രയ്ക്ക് സ്വീകരണം നൽകും വൈകീട്ട് കടപ്പു റത്ത് സ്വീകരണ പൊതുസമ്മേളനം നടത്തും മലപ്പുറം ചേളാരിയിലാണ് ഇന്നത്തെ പര്യടന് സമാപനം

സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് ഉച്ചയ്ക്ക്ശേഷം വയനാട് ജില്ലയിൽ പ്രവേശിക്കും

അൽപസമയത്തിനകം യാത്ര ഇരിട്ടിയിൽ എത്തിച്ചേരും മന്ത്രി കെ

ജലീലിനുനേരെ മലപ്പുറം കൊണ്ടോട്ടിയിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി രാജി വെക്കണമെന്നാവശ്യപ്പെട്ടാണ് മന്ത്രിക്കുനേരെ കരിങ്കൊടി കാണിച്ചത്

സംഭവവുമായി ബന്ധപ്പെട്ട് കമ്പനിയിലെ രണ്ട് ജീവന ക്കാരെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിലൊരാൾ സംഭവദിവസം കഴക്കൂട്ടത്തുനിന്നും ലൈറ്റർ വാങ്ങിയതായി പൊലീസിന് വിവരം ലഭിച്ചി ട്ടുണ്ട് ചിറയൻകീഴ് കഴക്കൂട്ടം സ്വദേശികളായ ഇവരുടെ ശമ്പളം മാനേ ജ്മെന്റ് വെട്ടിക്കുറച്ചിരുന്നു ഇതിന്റെ പ്രതികാരമായി ഇവർ കമ്പനിക്ക് തീകൊടുത്തായാണ് കരുതുന്നത്

രാജ്യത്ത് ഇന്ധന വില ഇന്ന് വീണ്ടും കുറഞ്ഞു

പ്രളയത്തെത്തുടർന്ന് മാറ്റിവെച്ച നെഹ്റുട്രോഫി ജലോത്സവം ആല പ്പുഴ പുന്നമടക്കായലിൽ തുടങ്ങി ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഉച്ച കഴിഞ്ഞ് മത്സരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും

ഉച്ചകഴിഞ്ഞ് ഫൈനൽ മത്സരങ്ങൾ നടക്കും

ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ഇന്ന് അത്ലറ്റികോ ഡി കൊൽക്കത്ത പൂനെ സിറ്റിയുമായി ഏറ്റുമുട്ടും

മുപ്പതാമത് സംസ്ഥാന സീനിയർ വനിതാ പുരുഷ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് അടൂരിൽ തുടങ്ങി

എം

എസ് ഡി ഡിവിഷനുകളിൽ നിന്നുള്ളവർക്കായി വിവിധ മത്സരങ്ങൾ നടക്കും കണ്ണൂർ മുനിസിപ്പൽ സ്കൂളിലെ മൂന്ന് വേ ദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് കണ്ണൂർ സർവ്വകലാശാല ഇന്റർ കൊളീജിയറ്റ് അത്ലറ്റിക്ക് മീറ്റ് ഇന്നു നാളെയുമായി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നടക്കും

സർവ്വകലാശാലയുടെ സിന്തറ്റിക്ക് ട്രാക്കിലെ ആദ്യ്ത്ലറ്റിക്ക് മീറ്റാണ് ഇത് രാവിലെ ടി വി രാജേഷ് എം

എ ഉദ്ഘാടനം ചെയ്യും ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുല്ം കേരള എഫ്

വൈകീട്ട് അഞ്ചിന് കോഴി ക്കോട് കോർപ്പറേഷൻ ഇ

സ്റ്റേഡിയത്തിലാണ് മത്സരം കേരള കലാമണ്ഡലം വിട്ടുവീഴ്ചയില്ലാത്ത കലാസപര്യാകേന്ദ്രമാ ണെന്ന് സ്പീക്കർ പി

കലാമണ്ഡലം കൂത്ത മ്പലത്തിൽ വള്ളത്തോൾ ജയന്തിയും കലാമണ്ഡലം വാർഷിക സമ്മേള നവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പഴമയുടെ ശക്തി ചോർന്നുപോകാതെ പുതുമയെ ആവാഹിക്കുന്നതാണ് യഥാർത്ഥകല യെന്നും കലകളെ ജനാധിപത്യവത്കരിച്ച പ്രതിഭാശാലിയാണ് മഹാകവി വള്ളത്തോൾ എന്നും സ്പീക്കർ പറഞ്ഞു

ഐ സംസ്ഥാന സമ്മേളനത്തിന് നാളെ കോഴിക്കോട്ട് കൊടിയുയരും

മൂന്ന് ജാഥകളും നാളെ വൈകീട്ട് കോഴിക്കോട് കടപ്പു റത്ത് സംഗമിക്കും തുടർന്ന് സ്വാഗതസംഘം ചെയർമാൻ പി മോഹനൻ സമ്മേളനത്തിന് പതാക ഉയർത്തും തിങ്കളാഴ്ച പ്രതിനിധി സമ്മേളനം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി സായിനാഥ് ഉദ്ഘാടനം ചെയ്യും ബുധ നാഴ്ച സമാപന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നീരൊഴുക്ക് കുറഞ്ഞതോടെ പഴശ്ശി ജലസംഭരണിയുടെ മുഴുവൻ ഷ ട്ടറുകളും അടച്ചു

ഈ മാസം അവസാനത്തോടെ ഷട്ടർ അടയ്ക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം വിജയിപ്പിക്കുന്നതിനായി നാളെ മട്ടന്നൂരിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേരും വൈ കീട്ട് ടൌൺസ്ക്യറിൽ മന്ത്രി ഇ പി ജയരാജന്റെ അധ്യക്ഷതയിലാണ് യോഗം

ഇന്നും അടുത്ത വെള്ളിയാഴ്ചയും തിരുച്ചെന്തൂർ പാലക്കാട് പാസഞ്ചർ മധുരയിൽ നിന്ന് വൈകീട്ട് ആറര യ്ക്കായിരിക്കും പുറപ്പെടുക വയനാട് ചുരത്തിൽ കെ

സി ബസും ലോറിയും കൂട്ടി യിടിച്ച് ഏറെനേരം ഗതാഗതം സ്ത്രംഭിച്ചു